പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ്ങ് തോബ്ഗെയുമായി കൂടിക്കാഴ്ച നടത്തി

ഒരോ അഞ്ച് വിദേശ കുടുംബങ്ങളെയെങ്കിലും ഭാരത ദർശനത്തിനായി ഇന്ത്യയിലേയ്ക്ക് വരാൻ പ്രേരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ്

ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം

പരസ്പര സഹകരണം ലക്ഷ്യമിട്ടുള്ള വിഷയ്ങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്ന് വിദേശകാര്യ വകുപ്പ് വക്താവ് രവീഷ്കുമാർ ട്വീറ്റ് ചെയ്തു മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി തോബ്ഗെ ഇന്നലെയാണ് ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനും അൻപത് വർഷമായി തുടരുന്ന നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഡമാക്കാനും ലക്ഷ്യമിട്ടാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യാ സന്ദർശനം

ഇന്ത്യയുടെ വിനോദ സഞ്ചാരവികസനത്തിന് വലിയ തോതിൽ ഊർജ്ജം പകരുന്ന ഏക ഭാരതം ശ്രേഷ്ട ഭരതം യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു പുതിയ പന്ഥാവ് ഒരുക്കാൻ ഇതിലൂടെ കഴിയൂർമ്മ്ന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അമേരിക്ക്യിലെ കാലിഫോർണിയയിലാണ് ഇൌ വർഷം അന്താരാഷ്ട്ര ക്ൺവെൻഷൻ നടക്കുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി മുദ്രപദ്ധതി സ്കിൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക

തുടർന്ന് അദ്ദേഹം ഒരു പൊതു പരിപാടിയെ അഭിസംബോധന ചെയ്യും

രാഷ്ട്രപതിയുടെ പ്രഥമ ഗോവാ സന്ദർശനമാണിത് ഗോവ സർവ്വകലാശാലയുടെ മുപ്പതാം വാർഷിക സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുസമ്മേളനത്തിലും ശ്രീ

യുനെസകോ ലോക പൈതൃക സ്ഥാനമായ പുരാതനമായ ഗോവയിലെ പ്രേഷ്ടാം ജീസസ് ബസലിക്ക് മാർഡോലിലെ ശ്രീ മാംഗേശി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം രാഷ്ട്രപ്പതി ഡൽഹിയിലേക്ക് മടങ്ങും

മുതിർന്ന ജഡ്ജി എന്ന നിലയ്ക്ക് കോടതിയുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും ബെഞ്ചുകൾ നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ടെന്ന് കോടതി വൃക്തമാക്കി

എസ് ടി നടപ്പിലാക്കിയിട്ട് ഒരു വർഷം തികഞ്ഞതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

ടി ദ്വീഫ്ണ്ട് ചെയ്യുന്ന പ്രക്രിയ മുഴുവനായും ഓട്ടോമാറ്റിക് ആക്കാന്റു് ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

എന്നാൽ ബാൽത്തൽ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കാലാവസ്ഥയിൽ നേരിയ പുരോഗതി ഉണ്ടായതിനാൽ തീർത്ഥാടകർക്ക് പഹൽഗാം ബെയ്സ് കൃാമ്പിൽ നിന്നും ഗുഹാക്ഷേത്രത്തിലേക്ക് നീങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് ഉരുൾപ്പൊട്ടലിനെ തുടർന്നാണ് ബൽതാൽ വഴിയുള്ള യാത്ര നിർത്തി വച്ചിരിക്കുന്നത്

ഇന്ത്യൻ എംബസിക്ക് പൂറ്റിമ് ഉത്തർപ്രദേശ് ഗവൺമെന്റും ഇന്ത്യൻ റെയിൽവേയും തീർത്ഥാട്കർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്

വിസ സംബന്ധിച്ച പാർലമെൻറി കൂടിയാലോചന സമിതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാത്രാ രേഖയുള്ള വിദേശ സഞ്ചാരികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാനുള്ള നടപടി ക്രമങ്ങൾ ലഘൂകരിക്കേണ്ടതുണ്ട് ഇതിനായുള്ള ദൌത്യം അടിയന്തര പ്രാധാന്യത്തോടെ ഗവൺമെന്റ് നടപ്പാക്കി വരികയാണ്

പാനമ പേപ്പർ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത് ഷെരീഫിന്റെ മകൾ മറിയത്തിന് ഏഴ് വർഷം തടവ് ശിക്ഷയും മരുമകൻ ക്യാപ്റ്റൻ സഫ്ദറിന് ഒരു വർഷം തടവും കോടതി വിധിച്ചു നവാസ് ഷെരീഫ് പത്നി കുൽസും നവാസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലണ്ടനിലാണ്

രാജ്യത്തിനെതിരെ ആഭ്യന്തര ലഹള നടത്താൻ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻ

എ ഇവരെ ചോദൃം ചെയ്യുന്നത്

ഐ അന്വേഷിക്കുന്നത്

ശ്യാമ പ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നല്ല അധ്യാപകനും മികച്ച ഭരണകർത്താവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടി പോരാടിയ ധീരനുമായിരുന്നു ഡോ

സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്തി തവാർചന്ദ് ഗെലോട്ട് ന്യൂഡൽഹിയിൽ രാജ്ഘട്ടിനടുത്തുള്ള സമാധി സ്ഥലത്ത് പുഷ്പചക്രം അർപ്പിച്ചു ജഗ്ജീവൻ റാമിന്റെ മകളും മുൻ ലോക്സഭാ സ്പീക്കറും കൂടിയായ മീരാകുമാർ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു

ഡിജിറ്റൽ ലോ ക്കർ അക്കൌണ്ടിൽ ലോ്ഗിൻ ചെയ്ത ശേഷം ഇഷ്യൂഡ് ഡോക്യു മെന്റ്സ് വിഭാഗത്തിൽ ലഭ്യമാകുന്ന ആധാർകാർഡും ഡ്രൈവിംഗ് ലെസൻസും ആണ് തിരിച്ചറിയൽ രേഖയായി കാണിക്കാനാവുക അതേസമയം ഉപഭോക്താവ് സ്വയം അപ്ലോഡ് ചെയ്തു വെച്ചിരി ക്കുന്ന രേഖകൾ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കില്ല

വിശദാംശങ്ങളുമായി പ്രസാദ് നീലേശ്വരം

ലാറ്റിനമേരിക്ക്ൻ തന്ത്രങ്ങളുമായി കളിക്കളത്തിലിറങ്ങുന്ന ഉറുഗ്വേക്ക് ഫ്രാൻസിന്റെ യൂറോപ്യൻ ശൈലി വലിയ വെല്ലുവിളിയുയർത്തും

അതിശക്തരായ വിരുദ്ധശൈലികളുള്ള ടീമുകളുടെ ഏറ്റുമുട്ടൽ ലോകം ഉറ്റുനോക്കുകയാണ്